പതിനാലാം കേരള നിയമസഭയുടെ പതിനെട്ടാം സമ്മേളനത്തിന് പരിസമാപ്തി അടിയ്കന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷ്കേധ്യിച്ച് അവസാന ദിവസവും പ്രതിപക്ഷത്തിന്റെ ഇറ്റങ്ങിപ്പോക്ക്

പോലീസുകാർക്ക് ക്വാർട്ടേഴ്സ് നിർമിക്കാനുള്ള പണം ഉന്നത ഉദ്യോഗസ്ഥർക്ക് ആഡ്ക്ബർ ഫ്ളാറ്റുകൾ നിർമ്മിക്കാൻ വകമാറ്റിയെന്ന് സി എജി റിപ്പോർട്ട്

സംസ്ഥാന തീരദേശ പരിപാലന പദ്ധതി സമയബന്ധിതമായി തയ്യാറാക്കാൻ മുഖ്യമന്ത്രിയുടെ അദ്ധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു

ജനങ്ങളിൽ ഭീതി പരത്തുന്ന വിധം വാർത്തകൾ നൽകുന്നതിൽ നിന്ന് മാധ്യമങ്ങൾ വിട്ടു നിൽക്കണമെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ

നിയമസഭ ഇൻട്രോ പതിനാലാം കേരള നിയമസഭയുടെ പതിനെട്ടാം സമ്മേളനത്തിന് പരിസമാപ്തി ധനമന്ത്രി തോമസ് ഐസക് അവതരിപ്പിച്ച ബജറ്റിന്മേലുള്ള ചർച്ച പൂർത്തിയാക്കിയാണ് സഭ പിരിഞ്ഞത് ഒരു നിയമന നിരോധനത്തെക്കുറിച്ചോ പെൻഷൻ പ്രായം ഉയർത്തുന്നതിനെക്കുറിച്ചോ സർക്കാർ ആലോചനയില്ലെന്ന് ചർച്ചക്ക് മറുപടി പറഞ്ഞ ധനമന്ത്രി അറിയിച്ചു സ്കൂൾ മേഖലയിലെ നിയമന രീതിയെക്കുറിച്ച് ബജറ്റിൽ പറഞ്ഞത് പൊതുവേ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് മാനേജ്മെന്റിന്റെ ഒരു നിയമനാവകാശത്തിനു്ടുമേലും സർക്കാർ കൈവച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു

ഗവർണറെ പ്രതിപക്ഷം തടഞ്ഞതടക്ക്മുള്ള് നാടകീയ സംഭവങ്ങൾക്കും സഭ വേദിയായി

നിയമസഭ വോയ്സ് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങളും ഇത്തരം കേസുകളിൽ പോലീസ് നടപടികളിലെ വീഴ്ചയും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തെ ഷാനിമോൾ ഉസ്മാനാണ് അടിയന്തരപ്രമേയത്തിന് അനുമതി തേടിയത് ഇത്തരം കേസുകളിൽ പോലീസ് ജാഗ്രത പുലർത്തുന്നതായും ശക്തമായ നിയമനടപടികളും ഊർജ്ജിത അന്വേഷണവും നടത്തുന്നതായും പ്രതിപക്ഷത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകി സ്ത്രീസുരക്ഷ ഉറപ്പാക്കാൻ ക്രിയാത്മക സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞുമുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തരപ്രമേയത്തിന് അനുമതി നിഷേധിക്കുകയും പ്രതിപക്ഷം ഇറങ്ങിപ്പോകുകയുമായിരുന്നു സ്ത്രീസുരക്ഷയുടെ പേരിൽ അധികാരത്തിലെത്തിയ സർക്കാർ ഇതിനായി ഒന്നും ചെയ്യുന്നില്ലെന്ന് ഷാനിമോൾ ഉസ്മാൻ ആരോപിച്ചു അംഗങ്ങളുടെ ചോദ്യങ്ങൾക്കും സബ്മിഷനുകൾക്കും ബന്ധപ്പെട്ട മന്ത്രിമാർ മറുപടി നൽകി

പൊലീസ് സേവനമേഖലയിലേക്ക് കൂടുതൽ സ്ത്രീകളെ ആകർഷിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം ഗീതാഗോപിയുടെ സബ്മിഷന് മറുപടി നൽകി അണക്കെട്ടുകളിലെയും റിസർവോയറുകളിലെയും മണലും ചെളിയും നീക്കം ചെയ്ത് ഡാമുകളുടെ സംഭരണശേഷി വർദ്ധിപ്പിക്കുന്നതിനും പ്രളയ സാധ്യത കുറയ്ക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിവരുകയാണെന്നും അദ്ദേഹം അറിയിച്ചു

സിഎജി റിപ്പോർട്ട് ധനമന്ത്രി ത്തോമസ് ഐസക് ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചും ഇക്കാര്യത്തിൽ സംസ്ഥാന പൊലീസ് മേധാവിയുടെ ഇടപ്പെട്ലുണ്ടായതായും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്

ബുളറ്റ് പ്രൂഫ് വാഹനങ്ങൾ വാങ്ങീയപ്പോഴും മാർഗനിർദ്ദേശവും നടപടിക്രമവും പാലിച്ചില്ലെന്നും സിഎജി കണ്ടെത്തി തിരുവനന്തപുരം എസ്

രമേശ് ചെന്നിത്തല പോലീസ് ക്യാമ്പിൽ നിന്ന് ആയുധങ്ങൾ കാണാതായ സംഭവം അതീവ ഗൌരവമുള്ളതാണെന്നും രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ് നമാണെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അതിനാൽ ഇക്കാര്യത്തിൽ എൻ

എന്നാൽ സി

റിപ്പോർട്ടിനെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കി മുഖ്യമന്ത്രി സംസ്ഥാന തീരദേശ പരിപാലന പദ്ധതി സമയബന്ധിതമായി തയ്യാറാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു

ജിപ്പിൽക്കബ് തോമസിനെതിരെ ബിനാമി സ്വത്ത് സമ്പാദന കേസിൽ ്വിജിലൻസ് അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ചിന്റെ ശുപാർശ് ലഭിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയെ അറിയിച്ചു ഇക്കാര്യം സർക്കാർ പരിശോധിച്ച് വരികയാണ്

ജി പിക്ക് എതിരെ കൂത്തുപറമ്പ് സ്വദേശിയുടെയും പേര് വെക്കാതെയുമുള്ള പരാതികൾ നേരത്തെ ലഭിച്ചിരുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

തിരുവല്ലയിൽ ഒരു ദിനപത്രം സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനാധിപത്യം നിലനിൽക്കുന്നത് നിർഭയമായും നിഷ്പക്ഷമായും പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളിലൂടെയാണ് വസ്തുനിഷ്ഠമായ വിവരങ്ങൾ നൽകുന്നതിനേക്കാൾ വേഗത്തിൽ വിവരങ്ങൾ നൽകുന്നതിന് മാധ്യമങ്ങൾ പ്രാമുഖ്യം നൽകുന്നത് അഭികാമ്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു

കേരള ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ വെബ്സൈറ്റിലും താലൂക്ക് ഓഫീസുകൾ വില്ലേജ് ഓഫീസുകൾ എന്നിവിടങ്ങളിലും ബൂത്ത് ലെവൽ ഓഫീസർ ്മാരുടെ കൈവശവും പട്ടിക പരിശോധനയ്ക്ക് ലഭിക്കും

ജലവിഭവ വകുപ്പുമന്ത്രി കെ

വെള്ളം കിട്ടാത്ത് കാലയളവിലെയും മീറ്റർ പ്രവർത്തനരഹിതമായ കാലയളവിലെയും വെള്ളക്കരം കണക്കാക്കൽ വെള്ളക്കര കുടിശികയിലെ പിഴ ഗാർഹികഗാർഹികേതര കണക്ഷനുകളിലെ ബില്ലിംഗ് അപാകതകൾ മീറ്റർ പ്രവർത്തിക്കാത്തതുമായി ബന്ധപ്പെട്ടവ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട പരാതികൾ എന്നിവ പരിഹരിക്കാൻ ഉപഭോക്താക്കൾക്ക് അദാലത്തുകളിൽ പങ്കെടുക്കാം

ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ തയ്യാറാക്കിയ റിപ്പോർട്ട്

പെട്രോൾ ഒഴിച്ച് പതിനേഴുകാരിയെ ക്രൂരമായി തീ ക്ടൊളുത്തി കൊന്ന സംഭവം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തൃരീതിയെക്കുറിച്ച് ലഭിച്ച പരാതി തീർപ്പാ ക്കവെയാണ് കമ്മീഷൻ ചെയ്ർമാൻ പി സുരേഷ് അംഗം ഡോ

പി ആന്റണി എന്നിവരുടെ ബൃച്ചിന്റെ നിർദേശം വ്യാജക്കള്ള് കടുത്തുരുത്തി വ്യാജക്കള്ള് കേസിലെ പ്രതികളെ രക്ഷിക്കാൻ രാസപരിശോധനാ റിപ്പോർട്ട് തിരുത്തിയതിനെ കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണം എന്ന് ഹൈക്കോടതി കേസിൽ ഒന്നാം പ്രതി നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാണ് ഹൈക്കോടതി വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടത് എക്സ്സൈസിനും പോലീസിനും വ്യത്യസ്ത റിപോർട്ടുകൾ നൽകിയതിനെ തുടർന്നാണ് കള്ളക്കളി പൊളിഞ്ഞത്

ജില്ലാ ആശുപത്രിയിൽ ഒരാളും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഒരാളുമാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്

രണ്ട് ഫലങ്ങൾ ഇനി ലഭിക്കാനുണ്ട്

ഇ ഗവേണൻസ് മുംബൈയിൽ നടന്ന ഇരുപത്തിമൂന്നാമത് ദേശീയ ഇ ഗവേണൻസ് സമ്മേളനത്തിൽ കേരള സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് പോർട്ടൽ വിഭാഗത്തിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തി

സസ്പെൻഡ് ചെയ്തു സ്വകാര്യ വ്യക്തിക്ക് സർക്കാർ ഭൂമി പതിച്ചു നൽകിയ കേസിൽ വയനാട് ജില്ല സ്പെഷ്യൽ ഡെപ്യൂട്ടി കളക്ടർ എൻ